ആവശ്യമായിരുന്നുവെന്ന് ഗുജറാത്തിൽ മൂന്ന് സുപ്രധാന പദ്ധതികളുടെ ശിലാസ്ഥാപനം നിർവഹിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

കർഷകക്ഷേമം സർക്കാരിന്റെ പ്രഥമ പരിഗണനയാണെന്നും അതനുസരിച്ചാണ് സർക്കാർ നിയമനിർമ്മാണം നടത്തിയതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പ്രതിപക്ഷ കക്ഷികളും വർഷങ്ങളായി ഈ ആവശ്യം ഉന്നയിച്ചിരുന്നത് ആണെന്നും കർഷകരെ തെറ്റിദ്ധരിപ്പിക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഗുജറാത്തിലെ കച്ചിൽ മൂന്ന് സൂപ്രധാന പദ്ധതികളുടെ ശിലാസ്ഥാപനകർമം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലോകത്തിലെ ഏറ്റവും വലിയ പുനരുപയോഗ ഊർജ പാർക്ക് സമുദ്ര ജല് ശുദ്ധീകരണ പ്ലാന്റ് പാൽ സംസ്കരണ പായ്ക്കിംഗ് പ്ലാന്റ് എന്നീ മൂന്ന് പ്രധാന പദ്ധതികളുടെ ശിലാസ്ഥാപന ക്ർമ്മമാണ് പ്രധാനമന്ത്രി നിർവഹിച്ചത് കൂടുതൽ വിവരങ്ങളുമായി ലക്ഷ്മി ശ്രീ വിജയ

സോളാർ പാനലുകളും കാറ്റാടി യന്ത്രങ്ങളും സ്ഥാപിക്കാൻ പൊതു സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് പാർക്കിൽ സ്ഥലം അനുവദിച്ചിട്ടുണ്ട്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ആകാശവാണി വാർത്തകൾക്ക് നൽകിയ പ്രത്യേക്ക അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാരൃം വൃക്തമാക്കിയത് വസ്തുത മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള് സാഹചര്യങ്ങളിൽ വഴിതെറ്റിക്കാനും ആശയകുഴപ്പ് ഉണ്ടാക്കാനും നിരവധിപേർ ഉണ്ടാകും

ക്ടർഷക്രുമായി കാർഷിക നിയമങ്ങളെ കുറിച്ച് പിശദമായി സംസാരിക്കാനും ഫലപ്രദമായ നിർദേശങ്ങൾ തുറന്ന ്മനസ്സോടെ അംഗീകരിക്കാനും കേന്ദ്ര സർക്കാർ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു

സൂക്ഷ്മ സാമ്പത്തിക വികസനങ്ങളും സാമ്പത്തിക സ്ഥിരത വിഷയങ്ങൾ സംബന്ധിച്ച പ്രശ്നങ്ങളും യോഗം അവലോകനം ചെയ്തു

ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ പ്രതീക്ഷിച്ചതിലും മുൻപുതന്നെ തിരിച്ചുവരവ് നടത്തുമെന്നും യോഗം വിലയിരുത്തി

വാണിജ്യ രംഗത്തെ പ്രമുഖരുമായി നടന്ന ചർച്ചയിൽ ധനകാര്യ സെക്രട്ടറിയും മുഖ്യ സാമ്പത്തിക ഉപദേശകനും അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു വ്യവസായ പ്രമുഖരുമായുള്ള ആദ്യഘട്ട ചർച്ചകൾ ധനമന്ത്രി ഇന്നലെ നടത്തിയിരുന്നു

ഇന്ത്യയുടെ ക്ഷണം അർഗ്ലീകരിച്ചതായി യു

സർക്കാർ മേഖലയും സ്വകാര്യ മേഖലയും പ്രകൃതിയോടിണങ്ങിയ കെട്ടിടങ്ങൾ എന്ന ആശയം പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചും അദ്ദേഹം ചൂണ്ടിക്കാട്ടി

ഇന്ത്യയുടെ ആദ്യ ഉപപ്രധാനമന്ത്രിയായിരുന്ന സർദാർ പട്ടേൽ രാജ്യത്തിന്റെ ഏകീകരണം സാധ്യമാക്കിയ ഉരുക്കുമനുഷ്യനായാണ് അംഗീകരിക്കപ്പെടുന്നത് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി കേന്ദ്ര ആഭ്യന്തര മന്ത്രി ്അമിത് ഷാ തുടങ്ങി പ്രമുഖർ സർദാർ വല്ലഭായ് പട്ടേലിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു സർദാർ വല്ലഭായി പട്ടേൽ കാണിച്ചുതന്ന പാത രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തൂസൂക്ഷിക്കാൻ എന്നും നമുക്ക് പ്രചോദനം നൽകുമെന്ന് പ്രിൽാന്മന്ത്രി നരേന്ദ്ര മോദി ട്വീറ്റ് ചെയ്തു

കോട്ടയം തൃശൂർ എറണാകുളം ജില്ലകളിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ളത്

ടി

സി

തീർത്ഥാടനത്തിനോട് അനുബന്ധിച്ച് കോവിഡ് രോഗികളുടെ എണ്ണം കൂടുന്ന സാഹചര്യത്തിലാണ് പുതിയ മാർഗനിർദേശങ്ങൾ പുറത്തിറക്കിയത്

ഫൈസർ സെറം ഇൻസ്റ്റ്റീറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ഭാരത് ബയോട്ടെക്ക് എന്നീ സ്ഥാപനങ്ങൾ വാക്സിൻ അംഗീകാരത്തിനായി അപേക്ഷ നൽകിയിട്ടുണ്ട് വാക്സിനുകളുടെ അടിയന്തിര ഉപയോഗത്തിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയാൽ ഉടൻ തന്നെ രാജൃത്ത് വാക്സിനേഷൻ യജ്ഞം ആരംഭിക്കും

തിരഞ്ഞെടുപ്പിന്റെ ഫലം പി

വോട്ടെണ്ണൽ ദിനത്തിൽ വിജയാഹ്ലാദ പ്രകടനങ്ങൾ നടത്തുമ്പോൾ കർശന കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്

സഭാധ്യക്ഷൻ കെ പ്രതാപ് ചന്ദ്ര ഷെട്ടി എത്തും മുൻപ് സ്ഥാനം വഹിക്കാൻ തയ്യാറായ ഉപാധ്യക്ഷൻ എസ് എൽ ധർമഗൌഡയുടെ തീരുമാനത്തെ കോൺഗ്രസ്സ് അംഗങ്ങൾ എതിർത്തു എന്നാൽ ഉപാധ്യക്ഷൻ സഭ നടത്തണം എന്നായിരുന്നു ബിജെപി ജെഡിഎസ് അംഗങ്ങളുടെ ആവശ്യം

ഗോപ്പിയിലാണ് മത്സരം നടക്കുന്നത്

തപാൽ മാർഗ്ഗത്തിലൂടെ ബാങ്കിംഗ് സേവനങ്ങൾ ഉറപ്പാക്കാൻ ഡാക്ക് പേ ്ആപ്പിലൂടെ സാധിക്കും